വിവിപാറ്റ് രസീതിക്ൾ കൃഎണ്ണുന്ന ബൂത്തുകളുടെ എണ്ണം ന് വർദ്ധിപ്പിക്കണഉമുന്ന് സുപ്രീംകോടതി

ആർ ടി സി എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ട വിധിയിൻമേൽ നിയമോപദേശം തേടുമെന്ന് ഗതാഗത മന്ത്രി

സൺറൈസേഴ്സ് ഹൈദ്രാബാദുമായി ഏറ്റുമുട്ടും

മാലെദ്വീപ് ജനങ്ങളോടുളള പാർട്ടിയുടെ പ്രതിബദ്ധതയും പാർട്ടി മുന്നോട്ട് വച്ച നയങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിന്റെയും സൂചനയാണ് വിജയമെന്നും ശ്രീ മോദി പറഞ്ഞു

മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദിനെയും ശ്രീ മോദി ഫോണിൽ അഭിനന്ദനം അറിയിച്ചു ജനാധിപതൃം ഊട്ടിയുറപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാപേരെയും അഭിനന്ദിച്ചു ശ്രീ

മാലദ്വീപുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

ഒരു മണ്ഡലത്തിലെ പെട്ടെന്ന് നിശ്ചയിക്കുന്ന ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതികൾ എണ്ണുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെയും ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നു

ന്യൂസ് ഡസ്ക് ആകാശവാണി

കോടതി വിജയ്മല്യയെ ഇന്ത്യയ്ക്കു കൈമാറണമെന്ന് വെസ്റ്റ്മിനിസ്റ്റർ മജിസ്ട്രേറ്റ് നൽകിയ ഉത്തരവിനെ തുടർന്ന് യു കെ ആഭ്യന്തര സെക്രട്ടറി സാജീദ് ജാവിദും മല്യയെ ഇന്തൃയ്ക്ക് കൈമാറാൻ നിർദ്ദേശം നൽകിയിരുന്നു

എല്ലാ മണ്ഡലങ്ങളിലും ത്തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികമായി തെരഞ്ഞെടുപ്പ് ർഷ്ട്ൽവ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്

സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശ്ശോക് ലാവാസ സുശീൽ ചന്ദ്ര എന്നിവർ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ വിലയിരുത്തി വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നല്കിയിട്ടുള്ളതായി അവർ പറഞ്ഞു

ന്യൂനപക്ഷങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നരേന്ദ്രമോദി ഗവണ്മെന്റിന്റെ കാഴ്ചപ്പാടിനൊപ്പമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

സി യിലെ എംപ്പാറ്റിൽ ഡ്രൈവർമാരെ പിരിച്ചു വിടാനുള്ള ഹൈക്കോടതി പ്പ്ഉത്ത്ർവിനെതിരെ സാവകാശ ഹർജിയോ അപ്പീലോ നൽകാന്റ്വ്ദുമോയെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ

ഇതു സംബന്ധിച്ച നിയമവശങ്ങൾ പരിക്കോധിക്കും വിഷയത്തിൽ നിയമോപദേശം തേടാൻ എം ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ തുടർനടപടി സ്വീകരിക്കൂവെന്നും ശശീന്ദ്രൻ പറഞ്ഞു

ഇരു ടീമുകളും ഇതുവരെ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് എണ്ണത്തിൽ വീതം ജയിച്ചിട്ടുണ്ട് ഹൈദ്രാബാദ് മൂന്നാം സ്ഥാനത്തും റൺറേറ്റ് കുറവായതിനാൽ പഞ്ചാബ് ആറാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നാളെ ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും

പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഒന്നാമത്

ക്ട് സൈന നെഹ്വാൾ വനിതാ സിംഗിൾസിലും എച്ച്

വനിതാ പുരുഷ ഡബിൾസിലു് മിക്സഡ് ഡബിൾസിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും

ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് മുതൽ അദ്ദേഹത്തിന് സുരക്ഷ നല്കുന്നുണ്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറഞ്ഞു മിർവായിസ് ഒമർ ഫറൂഖിനൊപ്പം ഹൂറിയത് കോൺഫറൻസ് നേതാക്കളായ അബ്ദുൾഗനി ഭട്ട് ബിലാൽ ലോൺ മൌലാന അബ്ബാസ് അൻസാരി എന്നിവരുമുണ്ടായിരുന്നു

എന്നാൽ കോൺഗ്രസ് പ്രകടന പത്രിക പൊതു ജനങ്ങളുടെ അഭിവൃദ്ധിയാണ് ലക്ഷ്യമാക്കുന്നതെന്നും മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേൽ വ്യക്തമാക്കി നോട്ട് അസാധുവാക്കൽ ചരക്ക് സേവന നികുതി തൊഴിൽ സൃഷ്ടിക്കൽ എന്നിവയെ കുറിച്ച് ബിജെപി നേതാക്കൾക്ക് മിണ്ടാട്ടമില്ലെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജെവാല പറഞ്ഞു

ഭരണകക്ഷിയായ ബിള്ജ്പ്പൂ ഇപ്പോൾ പുതിയ വാഗ്ദാനങ്ങളുമായാണ് മുണ്ണൂട്ട് വന്നിട്ടുള്ളത്

ഹരിയാക്ട്യില്ല് ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മലിനീകമുണ്ട് നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ എന്നിവരുൾപ്പെട്ട സമിതിക്ക്ട്ടുണ് ഹരിത ട്രിബ്യൂണൽ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് ആദർശ് ശ്ശോയലിന്റെ നേതൃത്വത്തിലുളള ബഞ്ച് രൂപം നൽകിയത് ഒരു മാസ്ത്തിനുളളിൽ സമിതി ഇ മെയിലിലൂടെ റിപ്പോർട്ട് സമർപ്പിക്കണം

വിമത നേതാവ് ജനറൽ ഖലീഫ ഹഫ്തറിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ വ്യാഴാഴ്ച മുതൽ ആക്രമണം നടന്നു വരികയായിരുന്നു

പ്രിന്നാൽ അട്ടിമറി ശ്രമങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് ലിബിയൻ പ്രൂപ്ധാനമന്ത്രി ഫയെസ് അൽ സെറാജ് അറിയിച്ചു